പന്ത്രണ്ടാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സ്വയംപര്യാപ്ത ഭാരത മുന്നേറ്റത്തിന് കീഴിൽ സമഗ്രമായ പരിഷ്കരണ നടപടികൾക്ക് ഇന്ത്യ തുടക്കം ഇട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി സ്വയം പര്യാപ്ത ഭാരതം കോവിഡാനന്തര കാലത്ത് ആഗോള സമ്പദ് വൃവസ്ഥയ്ക്ക് ശക്തി പകരുമെന്നും ആഗോള മൂല്യ ശൃംഖലകളിൽ രാജ്യത്തിന് കരുത്തുറ്റ സംഭാവനകൾ നൽകാൻ ആകുമെന്നുമുള്ള പ്രതീക്ഷകളാണ് ഇൌ മുന്നേറ്റത്തിന് തുടക്കമിടാൻ ഉള്ള പ്രേരണയെന്നും ശ്രീ മോദി വെളിപ്പെടുത്തി

മാനവികതയുടെ താൽപര്യങ്ങളോട് ചേർന്നു പോകുന്ന രീതിയിലായിരിക്കും ഇന്ത്യയിലെ പ്രതിരോധമരുന്ന് ഉൽപാദനവും വിതരണവും നടക്കുകഎന്നും പ്രധാനമന്തി ഉറപ്പ് നൽകി

ബ്ലൂംബർഗ് ന്യൂ എക്കണോമി ഫോറം മൂന്നാം വാർഷിക യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ന പ്രധാനമന്ത്രി എല്ലാ തലങ്ങളിലുമുള്ള പുനർചിന്തനത്തിലൂടെ മാത്രമേ പുതിയൊരു ലോകം തുടങ്ങാനാവൂ രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ലോകം എങ്ങനെ അതിജീവനം സാധ്യമാക്കിയോ ആ രീതിയിൽ ആയിരിക്കണം കോവിഡിന് ശേഷമുള്ള നവീകരണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ അടക്കമുള്ള പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും

കൊവിഡ് കാലത്ത് ധനകാര്യ കമ്മീഷൻ എന്ന് പേരിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ അടുത്ത അഞ്ചു വർഷക്കാലയളവിൽ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾക്കിടയിൽ പങ്കുവയ്ക്കപ്പെടേണ്ട നികുതി സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടിന്മേൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ അടക്കം കേന്ദ്ര ധനമന്ത്രി ഇത് പാർലമെന്റിൽ സമർപ്പിക്കും

ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക എന്നീ രാജൃങ്ങളുടെ നാവികസേനകൾ തമ്മിലുള്ള സഹകരണം ശക്തമാകുന്ന സംയോജിത പ്രവർത്തനങ്ങൾ ആണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത് ഇന്ത്യയുടെ വിമാന വാഹിനിയായ വിക്രമാദിത്യയും അമേരിക്കയുടെ നിമിറ്റ്സും കേന്ദ്രീകരിച്ചാകും അഭ്യാസ പ്രകടനങ്ങൾ

മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആഭ്യന്തരം വിജിലൻസ് പൊതുഭരണം എന്നീ വകുപ്പുകളുടെ ചുമതല നിർവഹിക്കും പ്രധാന വകുപ്പുകളായ ധനകാര്യം ആരോഗ്യം കൃഷി നികുതി ഭൂപരിഷ്കരണം തുടങ്ങിയവ ബിജെപിക്കാണ് ഗ്രാമീണ വികസനം വിദ്യാഭ്യാസം ഊർജ്ജം എക്സസൈസ് പാർലമെന്ററി കാര്യം തുടങ്ങിയവ ജെ

ദൂരദർശനും പരിപാടി തൽസമയം സംപ്രേഷണം ചെയ്യും

ആറുമായും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുമായും സഹകരിച്ചാണ് പരീക്ഷണമെന്ന് കോവാക്സിൻ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന ഭാരത് ബയോടെക് അറിയിച്ചു

രണ്ടാം തവണയും മിസൈൽ വിജയമായി പരീക്ഷിച്ചതിൽ രാജ്യരക്ഷാ മന്ത്രി രാജ് നാഥ് സിംഗ് ഡി ആർ ഡി ഓ യെ അഭിനന്ദിച്ചു

പുരാതന ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ നയം ആവിഷ്കരിച്ചത് ഇക്കാരൃത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് സർവകലാശാലകളും ആത്മാർത്ഥമായി പിന്തുണ നൽകണമെന്നും ഉപരാഷ്ട്രപതി ആവശ്യപ്പെട്ടു

മഹാരാഷ്ട്രയിൽ പരുത്തി ഉത്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നു ജില്ലിയാണ് പർഭാനി

സ്വർണവില കുറഞ്ഞു